അന്താരാഷ്ട്ര തിനവർഗ്ഗം ്വർഷാചരണം സംബന്ധിച്ച ന് ഇന്ത്യൻ പ്രമേയം അംഗ്ലീക്രിച്ച് ഐകൃരാഷ്ട്ര പൊതുസഭ

ഭക്ഷ്യയോഗൃമല്ലാതെ നഷ്ടപ്പെടുന്നതായി ഐകൃരാഷ്ട്രസഭാ റിപ്പോർട്ട്

ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ആഗോളതലത്തിലെ കോവിഡാനന്തര സഹകരണവും ചർച്ചയിൽ വിഷയങ്ങളാകും

ഊർജ്ജ പരിസ്ഥിതി മേഖലയിൽ ആഗോളതലത്തിൽ ന്റൽകിയ സംഭാവന മാനിച്ചാണ് പുരസ്ക്കാരം

കേരളത്തിലും കോവിഡ് വാക്സിൻ വിതരണം പുരോഗമിക്കുകയാണ്

സംസ്ഥാനത്ത് ആവശ്യത്തിന് കോവിഡ് വാക്സിൻ സ്റ്റോക്കുണ്ടെന്നും ആരും തിരക്ക് കൂട്ടേണ്ട കാര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു

കഴിഞ്ഞ ദിവസങ്ങളിലായി വാക്സിൻ എടുക്കാൻ പല കേന്ദ്രങ്ങളിലും തിരക്ക് ഉണ്ടായ സാഹചര്യത്തിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും തിരക്ക് കുറയ്ക്കുന്നതിന് സ്പോട്ട് രജിസ്ട്രേഷനിൽ ടോക്കൺ സംവിധാനം നടപ്പാക്കാനും സംസ്ഥാനം തീരുമാനിച്ചു

കഴിഞ്ഞമാസം രണ്ട് മുതൽ മുൻനിര പോരാളികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചിരുന്നു

ആഗോള നിക്ഷേപകർക്കിടയിൽ ഇന്ത്യയോടുള്ള താത്പര്യം വർദ്ധിക്കുന്നതായാണ് ഇത് തെളിയിക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി

എഫ്

കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാങ്വറിന്റെ അദ്ധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ബിജെപി അദ്ധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് എന്നിവരും പങ്കെടുത്തു അസമിലെയും പശ്ചിമബംഗാളിലെയും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണ്ണയചർച്ചകളാണ് യോഗത്തിൽ പ്രധാനമായും നടന്നത് ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥിനിർണ്ണയത്തിനായി കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും നാളെ ചേരും

ഇന്ത്യയുടെ കോവിഡ് പ്രിതിരോധം അഭൂതപൂർവ്വമാണെന്നും അദ്ദേഹം ഒഡീഷയിൽ നടന്ന പരിപാടിയ്ക്കിടെ അറിയിച്ചു

ചട്ടങ്ങൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ ഒ

പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകാരൃമാണെന്ന് ഒ

പ്രേക്ഷകർക്ക് മികച്ച ഉളളടക്കം ലഭ്യമാക്കുന്നതിനായി സർക്കാരും ഒ

രംഗവും ഒരുമിച്ച് നിൽക്കുമെന്ന് ശ്രീ ജാവദേക്കർ അറിയിച്ചു

പുതിയ വിലയിരുത്തൽ അനുസരിച്ച് കഴിഞ്ഞ ഒൻപത് മാസങ്ങളിൽ ലോകത്താകമാനം ദേ കോടി യുവാക്കൾ കോവിഡ് ഭീതിമൂലം വീട്ടിൽ അകപ്പെട്ടു ഇത് അവരിൽ ഒറ്റപ്പെടലും ഭാവിയെപ്പറ്റിയുള്ള വേവലാതിയും സൃഷ്ടിച്ചുവെന്ന് യുണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു രാജ്യങ്ങൾ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ മെച്ചപ്പെട്ട സമീപനം കൈക്കൊള്ളണമെന്നും കൌമാര മാനസികാരോഗൃത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഏപ്രിൽ ഒന്നാം തീയതിയ്ക്കാണ് ്തെരഞ്ഞെടുപ്പ്

അസമിൽ മൂന്നും പശ്ചിമബംഗാളിൽ എട്ട് ഘട്ടങ്ങളിലുമായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്

ഉത്പാദനയിടത്തിലും വിതരണ ശൃംഖലയിലും നഷ്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെ വിവിധ കാരണങ്ങളാലാണ് ആഹാരം പാഴാക്കുന്നത്

തിനവർഗ്ഗങ്ങളുടെ പ്രിച്ചാർത്തിന് രാജ്യം മുന്നിൽ നിൽക്കുന്നതിൽ അഭിമാസ്ട്രിക്കു്ന്നുവെന്നും ഇത് കർഷരുടെ അഭിവൃദ്ധിക്കും ഭക്ഷ്യസൂര്ക്ഷയ്ക്കും പോഷകസമൃദ്ധിക്കും ഉതകുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ അനുമോദിച്ചു ഇത്തരം ആഗോള വിലയിരുത്തലുകൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗൃകരമായ മത്സരം സൃഷ്ടിക്കുമെന്നും അതുവഴി മികവിലേക്കുള്ള വഴി തുറക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രോഹിത് ശർമ്മയും ചേതേശ്ചർ പൂജാരയുമാണ് ക്രീസിൽ